ഹർഷ് വർധൻ

ത തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങൾ ക്രിട്ടിക്കൽ കണ്ടെയിൻമെന്റ് സോണായി നിയന്ത്രണം നിലവിൽ വന്നു ത കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സമ്പൂർണ്ണ ലോക്ക് ഡൌൺ

സി മൊയ്തീൻ വാർത്തകൾ വിശദമായി രാജ്യത്ത് കൊറോണ വാക്സിൻ പരീക്ഷണം മനുഷ്യരിൽ ആരംഭിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

പ്രാഥമിക പരീക്ഷണങ്ങളിൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയിട്ടില്ല

രാജ്യം കോവിഡിനെതിരായ പോരാട്ടത്തിൽ വൈകാതെ പൂർണ വിജയം നേടുമെന്നും ഡോ

രുമ സംസ്ഥാനത്ത് ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികളെ പ്രഥമതല കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ പരിചരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഗുരുതരമായ രോഗമുള്ളവരെ വെന്റിലേറ്റർ ഐ

യു സംവിധാനമുള്ള കോവിഡ് ആശുപത്രികളിൽ ചികിത്സിക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

ഇവരെ വീടുകളിൽ തന്നെ താമസിച്ച് പരിചരിച്ചാൽ മതിയെന്ന് വിദഗ്ദർ ഉപാധികളോടെ നിർദേശിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രേര ജില്ലകളിൽ രണ്ടു വീതം കോവിഡ് ആശുപത്രികളും പ്രഥമതല കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി അറിയിച്ചു സ്വകാര്യ ആശുപത്രികൾക്കും കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് ചെറുകിട ഇടത്തരം സ്വകാര്യ ആശുപത്രികൾക്ക് പ്രഥമതല കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ നടത്താൻ അനുമതി നൽകും സമൂഹ വ്യാപനമുണ്ടായാൽ നിലവിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ അവശ്യ സൌകര്യങ്ങളുള്ള പ്രാദേശിക കേന്ദ്രങ്ങളായി പ്രഥമതല ചികിത്സാ കേന്ദ്രങ്ങൾ ഉപയോഗിക്കും ഇത്തരം കേന്ദ്രങ്ങൾക്കായി ഹോട്ടലുകൾ ഹാളുകൾ കോളേജുകൾ തുടങ്ങിയവ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവായവരിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരേയും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം സെന്ററുകളിലേക്ക് മാറ്റും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ നിന്ന് രോഗം പകരാനും അതുവഴി സമൂഹ വ്യാപനത്തിന് സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദേശത്ത് നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും സംസ്ഥാനത്തിനകത്ത് രോഗവ്യാപനം നിയന്ത്രിക്കാൻ ഗവൺമെന്റും ജനങ്ങളും ഒത്തു ശ്രമിച്ചാൽ തീർച്ചയായും കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നവർ തിരികെ വീട്ടിലെത്തിയാലും മാസ്ക് ധരിക്കാനും ശാരീരിക അകലം പാലിക്കാനും തയാറാകണം

സംസ്ഥാനത്ത് എല്ലാ പൊലീസ് സ്റ്റേഷനുകളിലും ഒരു ഓക്സിജൻ സിലിണ്ടർ വീതം വാങ്ങി സൂക്ഷിക്കുമെന്നും അത്യാവശ്യ സമയങ്ങളിൽ പൊലീസ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഇതുപയോഗിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രുമ സംസ്ഥാനത്തെ ആദ്യ പ്ലാസ്മ ബാങ്ക് മഞ്ചേരി മെഡിക്കൽ കോളജിൽ പ്രവർത്തനം തുടങ്ങിയതായി മുഖ്യമന്ത്രി അറിയിച്ചു ഗുരുതര രോഗബാധിതരായ രണ്ടു പേർ കൂടി പ്ലാസ്മ തെറാപ്പിയിലൂടെ രോഗമുക്തി നേടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

കാസർകോട് പച്ചക്കറി മാർക്കറ്റ് കണ്ടെയിൻമെന്റ് സോണാക്കി ഒന്നിടവിട്ട ദിവസങ്ങളിൽ വ്യാപാരം അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രുര വയനാട്ടിൽ രോഗബാധിതരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുൽപ്പള്ളി തിരുനെല്ലി മുള്ളൻകൊല്ലി എന്നിവിടങ്ങളിൽ ക്ലസ്റ്റർ രൂപപ്പെടാനും സാധ്യത കാണുന്നുണ്ടെന്നും ആദിവാസി മേഖലയിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

തുടർച്ചയായ അഞ്ചു ദിവസത്തെ അപേക്ഷിച്ച് ഇന്നലെ രോഗികളുടെ എണ്ണം കുറഞ്ഞത് സംസ്ഥാനത്തിന് നേരിയ ആശ്വാസമായി

രുമ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങൾ ക്രിട്ടിക്കൽ കണ്ടെയിൻമെന്റ് സോണായി അർധരാത്രി മുതൽ നിയന്ത്രണം നിലവിൽ വന്നു

ഇൌ ദിവസങ്ങളിൽ ഒരു തരത്തിലും ലോക്ക്ഡൌൺ ഇളവുകൾ മൂന്ന് സോണുകളായി തിരിച്ച തീരപ്രദേശങ്ങളിൽ ഉണ്ടാവില്ല

രണ്ടു പേരുടെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല

ദേര കോഴിക്കോട് കോർപ്പറേഷൻ ഓഫിസിനോട് ചേർന്ന് തിരക്ക് നിയന്ത്രിച്ച വളണ്ടിയർക്ക് കോവിഡ് പരിശോധനയിൽ പോസിറ്റീവായതിനെ തുടർന്ന് ഇദ്ദേഹവുമായി സമ്പർക്കമുണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പടെയുള്ളവരോട് സ്വയം നിരീക്ഷണത്തിൽ പോകാൻ നിർദേശം നൽകി ഇവരുടെ പരിശോധന ചൊവ്വാഴ്ച നടക്കും അതുവരെ കോർപ്പറേഷൻ ഓഫിസിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല കോഴിക്കോട് ജില്ലയിലെ തൂണേരിയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം കൂടി തൂണേരി ഗ്രാമപഞ്ചായത്തിൽ നിന്നും തൊട്ടടുത്ത പഞ്ചായത്തുകളിലേക്ക് രോഗവ്യാപനം തുടങ്ങിയതിന്റെ ഭാഗമായി അതിർത്തി പഞ്ചായത്തുകൾ പൂർണമായും ടൌൺ വാർഡിൽ പെടുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫിസും കണ്ടെയ്മെന്റ്സോണായി പ്രഖ്യാപിച്ചു

ഇതേതുടർന്ന് ജില്ലയിൽ അനധികൃത മത്സ്യ വിൽപനക്കെതിരെ പരിശോധനകൾ ശക്തമാക്കാൻ ജില്ലാ കലക്ടർ നിർദേശം നൽകി രുര മലപ്പുറം ജില്ലയിൽ കോവിഡ് സമൂഹവ്യാപന സാധ്യത കണ്ടെത്തുന്നതിന്റെ ഭാഗമായി രണ്ടാംഘട്ട ആന്റിജൻ പരിശോധന തുടങ്ങി മലപ്പുറം മഞ്ചേരി തിരൂരങ്ങാടി നിലമ്പൂർ നഗരസഭകളിലാണ് പരിശോധന ആരംഭിച്ചത്

രുമ കണ്ണൂർ ജില്ലയിലെ പാനൂർ നഗരസഭയിലെയും കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെയും മുഴുവൻ വാർഡുകളും പൂർണ്ണമായും അടച്ചിടാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു

മൽസ്യ മാർക്കറ്റിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നടത്തിയ റാപ്പിഡ് പരിശോധനയിൽ കൂടുതൽ പോസിറ്റിവ് കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇന്ന് ഉണ്ടാവുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

വ്യാപന സാധ്യത കുറഞ്ഞതിനെ തുടർന്ന് അരിമ്പൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡും അതിരപ്പള്ളി പഞ്ചായത്തിലെ നാലാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് ഒഴിവാക്കി

പ്രതിദിനം അഞ്ഞൂറോളം സാമ്പിളുകളാണ് നിലവിൽ പരിശോധിക്കുന്നത്

കോവിഡ് വ്യാപനം വർധിച്ച രാജാക്കാട് പഞ്ചായത്തിലെ ഒന്നു മുതൽ ആറു വരെ വാർഡുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി പഞ്ചായത്തിലെ മറ്റു വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായിരിക്കും

രുര അന്താരാഷ്ട്ര കൊച്ചി വിമാനത്താവളത്തിൽ പ്രവാസികളുമായി ഇന്ന് ഏഴ് വിമാനങ്ങൾ എത്തും

ഇന്നലെ പ്രവാസികളുമായി ആറു വിമാനങ്ങളാണ് കൊച്ചിയിൽ എത്തിയത് ദേര ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

രുമ നിലമ്പൂരിൽ നൈജീരിയൻ സ്വദേശിക്ക് മലമ്പനി സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു